ആയുർവേദവും ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ന് ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കി

നാല് പദ്ധതികൾ ജല വിതരണവുമായും രണ്ടെണ്ണം മലിനജല സംസ്കരണവുമായും ഒരെണ്ണം നദീതട വികസനവുമായും ബന്ധപ്പെട്ടതാണ്

ഇന്നുള്ളി ആരംഭിച്ച പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പങ്കെടൂക്കാനാനെത്തിയ അംഗങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തൽത്തിലും ഈ സമ്മേളനത്തിൽ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു അതിർത്തിയിൽ സൈനിക്ർ അവരുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തോടും കൂടി നിലകൊള്ളുകയാണ് സൈനികർക്ക് ഐകൃദാർഢൃം പകർന്നുകൊണ്ടുള്ള സന്ദേശം പാർലമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഉപ ധനാഭ്യർത്ഥനകൾ സഭയിൽ അവതരിപ്പിച്ചത്

പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റംഗങ്ങളുടെ ശമ്പളവും അലവൻസും പെൻഷനും ഭേദഗതി ബിൽ അവശൃ വസ്തു ഭേദഗതി ബിൽ ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി ബിൽ എന്നിവ ഇന്ന് ലോക്സഭ പരിഗണിക്കും

സംഘർഷ ബാധിത മേഖലയിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള യുവജനങ്ങളെ ബസ്കർ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യും

ഇരു ചികിത്സാ ശാഖകളിലും ആവശ്യത്തിന് വിദഗ്ദ്ധരുടെ സേവനം ഉറപ്പാക്കുകയാണ് ബില്ലുകളുടെ ലക്ഷ്യം

ഹോമിയോപ്പതി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റാണ് ചെയർമാൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആഭ്യന്തര വിപണിയിൽ ഉള്ളിയുടെ വില നിയന്ത്രിക്കാനും ലഭൃത ഉറപ്പാക്കാനുമാണ് നടപടിയെന്ന് വിദേശൃ വ്യാപാര കാര്യങ്ങൾക്കായുള്ള ഡയറക്ടറേറ്റ് ജനുവർക്ക് അറിയിച്ചു ബംഗ്ലാദേശ് മലേഷ്യ യു

ഇ ശ്രീല്ക്ക് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നീസ്റ്റ് ഉള്ളി അധികവും കയറ്റി അയച്ചിരുന്നത്

രോഗവ്യാപനവും മരണവും നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായും കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞു

മറാത്ത സമുദായത്തിന് വിദ്യാഭ്യാമ്പ്ത്തീനും തൊഴിലിനും സംവരണം ഏർപ്പെടുത്തുന്നത് സുപ്പിച്ചുകോടതി സ്റ്റേ ചെയ്തിരുന്നു ഓർഡിനൻസ് ഇറക്കി ഇതിനെ മറികടക്കണമെന്ന് എൻ സി പി നേതാവ് ശരദ് പവാർ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം

കേന്ദ്ര സഹമന്ത്രി അനുരാഗ് സിങ്ങ് താക്കൂർ ലോക്സഭയിൽ അറിയിച്ചതാണിക്കാര്യം നടപ്പു സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ രണ്ട് ശതമാനം വരെ വായ്പയെടുക്കാൻ അധിക പരിധി അനുവദിച്ചിട്ടുണ്ട്

രോഗബാധിതരുടെ കാരൃത്തിൽ കർണാടക തലസ്ഥാനം ബംഗളൂരു മുംബൈയെയും മറികടന്നു

ഇതുവരെ മൂന്ന് കോടിയോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ഇത്തരം വാഹനങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്തും

വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിൻജിയാങ്ങിൽ വംശീയ ന്യൂനപക്ഷങ്ങളെ ബലപ്രയോഗത്തിലൂടെ തൊഴിലെടുപ്പിക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന കമ്പനികളെയാണ് വിലക്കിയത് ഈ കമ്പനികളുടെ പരുത്തി വസ്ത്രങ്ങൾ കമ്പ്യൂട്ടർ ഭാഗങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി മരവിപ്പിച്ച് യു എസ് കസ്റ്റംസ് ആന്റ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉത്തരവിറക്കി പത്ത് ലക്ഷം പേരെ ചൈന തടങ്കലിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്

രക്ഷാ പ്രവർത്തനം തുടരുകയാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു